ജെ

ജമ്മു സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമായി

കണ്ണൂർ തലശ്ശേരിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു

ജെ

പ്രവർത്തകരുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സംവാദത്തിന് അൽപ്പസമയം മുൻപ് തുടക്കമായി അനന്തപൂർ കടപ്പ കുർണൂൽ നരസരാവോ പേട്ട് തിരുപ്പതി എന്നിവിടങ്ങളിലെ ബൂത്ത്തല ബി ജെ

പാർട്ടി ഫെയ്സ്ബുക്ക് പേജിൽ ലൈവായും ബ്ലോഗിലും ഇത് സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് ലോക്സ്ഭാ തെരഞ്ഞെടുപ്പിന് ആന്ധ്ര ബി ജെ

ഘടകത്തെ സ്ജ്മാക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു

ഒഡീഷയിലെ ബരിപ്പാതയിൽ പൊതുസമ്മേളനത്തെ അഭി സംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വികസനം എല്ലാവരുടെയും വികസനം ദേശത്തിന്റെ വികസനം സമ്പൂർണ്ണ വികസനം എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിക സന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസര ങ്ങളും സൃഷ്ടിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി ഗ്രാമീണ ജനതയ്ക്ക് വീടുകൾ ഉറപ്പാക്കാൻ ഗവൺമെന്റ് ശ്രമി ക്കുന്നുവെന്നും പലാമുവിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി പറ ഞ്ഞു

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പ്രത്യേക സി ബി

ഇടപൂടിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട മിഷേലിനൌഷ്ടു് ദിവസം ഏജൻസി കസ്റ്റഡിയിൽ വെച്ചിരുന്നു

മഞ്ഞു വീഴ്ചയെ തുടർന്ന് ജമ്മുകാശ്മീരാണ് ഏറ്റവുമധികം ദുരിതം നേരിടുന്നത്

ഇവരെ വ്യോമമാർഗ്ഗം രക്ഷപ്പെടുത്താൻ കുപ്വാര ജില്ലാഭരണകൂടം ശ്രമം തുടങ്ങി മേഖലയിൽ റോഡുകൾ പൂർണ്ണമായും മഞ്ഞിൽ മൂടിയതിനാൽ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്

ഹിമസാനുക്കളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഹിമാചൽപ്രദേശും കൊടും ശൈത്യത്തിന്റെ പിടിയിലാണ്

ഉത്തരാഖണ്ഡിലെ ക്ടോർന്നാഥ് ബദരീനാഥ് മേഖലകളും മഞ്ഞിന്റെ പിടിയിലാണ്ട് സ്കീയിംഗ് വിനോദത്തിനായി ഇവിടെ ധാരാളം പേർ എത്തുന്നുണ്ട്

രാജ്യതലസ്ഥാനമായ ഡൽഹിയും കൊടുംതണുപ്പ് നേരിടുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീമതി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിനെയും നേർവെ പ്രധാനമന്ത്രി സന്ദർശിക്കും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നോർവെ ഉന്നതതല സംഘത്തെ കാണും ഇന്ത്യ നോർവെ ബിസിനസ്സ് ഉച്ചകോടിയേയും ശ്രീമതി

ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബിസിനസ്സ് പ്രതിനിധികളുടെയും ഒരു വലിയ സംഘവും നോർവെ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

ജെ

തമിഴ്നാട് ആന്ധ്രപ്രദേശ് പുതുട്ട്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചുമതലൂ കേന്ദ്രമന്ത്രി സി

യിലെ തെരഞ്ഞെടുപ്പ് ചുമതല ജെ

നദ്ദക്കും ഡൽഹിയിലേക്ക് കേന്ദ്രമന്ത്രി നിർമലാ സീതാരാമനും ജയ്മാൻ സിങ് പബിയർക്കും നൽകിയിട്ടുണ്ട്

ഹരിയാനയിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് കൽരാജ് മിത്രയും ബിശ്വാസ് സാരംഗുമാണ്

അവിനാസ് രാജ് ഖന്നക്ക് ത്രിപുര ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്

ഗുണമേന്മയുള്ള ജോലി കുറഞ്ഞ ചെലവ് പദ്ധതികളുടെ സമയബന്ധിതമായുള്ള പൂർത്തീകരണം പുതിയ സാങ്കേതിക വിദ്യ എന്നിവയിലൂന്നിയാണ് റോഡിന്റെയും പാല ങ്ങളുടെയും നിർമ്മാണം നടത്തുന്നതെന്നും ഗഡ്കരി പറഞ്ഞു

ഉസ്മാൻ എന്ന പേരിട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് ഫിലിപ്പൈൻസിൽ കനത്ത മഴ തുടരുന്നത്

ആറായിര ത്തോളം വീടുകൾ ഭാഗികമായും ആയിരത്തോളം വീടുകൾ പൂർണ്ണമായും തകർന്നു

രക്ഷാപ്രവർത്ത നത്തിനും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനും ആവശ്യമായ പണവും സഹായവും വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനും മീൻ പിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്

ബി ഐ

ഐ

ഇതിൽ ഹമീർപൂർ മുൻ ജില്ലാ മജിസ്ട്രേറ്റായ ബി

ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ പങ്കും പരിശോധിച്ചു വരികയാണെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ഖനി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുൻ മന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിയേയും സി ബി ഐ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്

രഹസ്യ വിവാഹമോചനങ്ങൾ തടയാനാണ് പുതിയ ചട്ടം കൊണ്ടു വന്നത് ഇത്തരത്തിലുള്ള വിവാഹമോചനങ്ങൾ സൌദിയിൽ വർദ്ധീക്കുകയാണെന്ന് അന്തർദേശീയ മാധ്യമമായ ബി ബി സി

ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐ നടത്തിയ ജാഥയ്ക്ക് നേരെ അക്രമണം ഉണ്ടായിരുന്നു

ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി വിളിച്ചു ചേർത്തു യോഗത്തിൽ സി പി ഐ എം ബി ജെ പി നേതാക്കൾ പ്പങ്കെടുത്തു രണ്ട് ദിവസത്തേക്ക് പ്രകടനങ്ങൾ നടത്തില്ലെന്ന് ഇരു പാർട്ടികളും സമ്മതിച്ചിരുന്നു

ഇതോടൊപ്പം കൊല്ലത്ത് ബിജെപി നടത്തുന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും തൃശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ പ്രസംഗിക്കും

ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഫെബ്രുവരിയിൽ കേരള സന്ദർശിച്ചേക്കും

ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് തായ്ലാൻഡിനെ നേരിടും

ഇ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എ വിഭാഗത്തിലാണ് ഇന്ത്യൂയും